പ്രധാനമന്ത്രിയുമായുള്ള വെർച്ചൽ കൂടിക്കാഴ്ച നാളെ

സ്ഥിരീകരിച്ചു

ലേയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ സത്യപ്രതിജ്ഞ ചടങ്ങ് കോവിഡ് മാനദണ്ഡം പാലിച്ച് നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

ശർമ്മ ഒലിയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്റ് പിരിച്ചുവിട്ടു

എൽ ഫുട്ബോളിൽ വൈകിട്ട് നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റി ഹൈദരബാദിനെ പരാജയപ്പെടുത്തി രണ്ടാം മത്സരത്തിൽ കേരള ബ്നാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും ഏറ്റുമുട്ടും

ഇന്ത്യ വിയറ്റ്നാം നയതന്ത്ര പങ്കാളിത്തത്തിള്ള് ഭൂപി വികസനത്തിന് തുടക്കം കുറിക്കാൻ ചർച്ച വഴിയൊരുക്കുമെന്നുട്ങ് പ്രതീക്ഷിക്കുന്നത്

മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ദേശീയ നേതാക്കളെ പ്രചോദിപ്പിക്കാൻ ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ആദർശങ്ങൾക്ക് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

വിശ്വഭാരതിയെ സാംസ്കാരിക പരിപാടികളുടെ മുഖ്യ കേന്ദ്രമായി മാറ്റാൻ ഗുരുദേവിന് സാധിച്ചുവെന്നും അദ്ദേഹം വിലയിരുത്തി തുടർന്ന് സർവകലാശാലയിലെ സംഗീത ഭവൻ സന്ദർശിച്ച ശ്രീ

വിശ്വഭാരതി സർവകലാശാലയുടെ മുഖ്യ കാര്യാലയത്തിന് മുൻപിലുള്ള പാതയെ വിവേകാനന്ദ സരണി എന്ന് ആഭ്യന്തര മന്ത്രി നാമകരണം ചെയ്തു ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ മുകുൾ റോയ് അടക്കമുള്ള ഉന്നത നേതാക്കൾ ശ്രീ

എം

പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി ഭരണകൂടത്തിന്റെ അഴിമതി ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുള്ളത് ആയി ആഭ്യന്തരമന്ത്രി കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഉക്രൈൻ പോള് എന്നിവിടങ്ങളിൽ ഇന്നലെ എണ്ണായിരത്തിലധികം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്

ജനാധിപത്യ പ്രക്രിയയോട് ജനങ്ങൾ സ്വീകരിച്ച സമീപനം പ്രതീക്ഷ ഉണർത്തുന്നതാണ് ഏറ്റവും താഴെ തട്ടിലെ ജനങ്ങൾ പോലും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായതിൽ സന്തോഷമുന്നും അദ്ദേഹം പറഞ്ഞു

ഇ കിറ്റ് ധശ്രിച്ച് കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് നേരിട്ട് ഹാജരായി സത്യപ്രിത്രീജ്ഞ ചെയ്യണം മറ്റെല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു ദ്ശേഷമാണ് ഇവർക്ക് അവസരം ജില്ലാ പഞ്ചായത്തുകളിലും മുൻസിപ്പൽ കൌൺസിലുകളിലും രാവിലെ പത്തിനാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്

ഇന്ന് രാവിലെ പ്രധാനമന്ത്രി ഒലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗമാണ് പാർലമെന്റ് പിരിച്ചുവിടാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചത്

ലോക്സഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നടത്തിയ മികച്ച പ്രകടനം ഇതിന് തെളിവാണെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു അനധികൃതമായി അസമിൽ താമസിക്കാൻ ബിജെപി നേതൃത്വം നൽകുന്ന ഭരണകൂടം ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി

നിയമോപദേശം കിട്ടിയതുകൊാണ് ഒളിവിൽ പോയതെന്നും മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളായ പ്രതികൾ പറഞ്ഞു നടിയോടും കുടുംബത്തോടും ക്ഷമചോദിക്കുന്നുവെന്നും പ്രതികൾ പറഞ്ഞു

എൽ ഫുട്ബോളിൽ ഇന്ന് വൈകിട്ട് നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റിക്ക് വിജയം